സ്റ്റാർട്ടപ്പുകൾക്ക് കേന്ദ്രസർക്കാർ വലിയ പ്രോത്സാഹനമാണ് നൽകുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ്സിംഗ്

രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ രാജ്യസഭയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ഗ്രമങ്ങളുടെയും കർഷകരുടെയും വികസനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന തുടങ്ങിയവ ഫലപ്രദമായി നടപ്പാക്കി വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു

പി എം പി മാരും രാജ്യസഭയിൽ ഹാജരായിരിക്കണം എന്ന് പാർട്ടി വിപ്പ് നൽകി കർഷകരുമായി തുടർന്നും ചർച്ചക്ക് സർക്കാർ തയാറാണെന്നു ബിജെപി എംപി വിനയ് സഹ്രസ്രബുദ്ധേ രാജ്യസഭയിൽ പറഞ്ഞു എന്നാൽ ചില സ്വകാര്യകമ്പനികളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് കാർഷിക നിയമം കൊണ്ടുവന്നതെന്ന് കോൺഗ്രസ് എംപി പ്രതാപ് സിങ് ബജ്വ ആരോപിച്ചു കാർഷികനിയമം പിൻവലിക്കണമെന്നും പ്രശ്നങ്ങൾക്ക് രമ്യമായി പരിഹാരം കണ്ടെത്തണമെന്നും ശിവസേന എംപി സഞ്ജയ് റാവുത് ആവശ്യപ്പെട്ടു കാർഷികനിയമം റദ്ദാക്കണമെന്ന് സിപിഐ യിലെ ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു

നാളെ മടിക്കേരി സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ ജനറൽ തിമയ്യ മ്യൂസിയം നാടിനായി സമർപ്പിക്കും

വെർച്ചൽ സംവാദ സംവിധാനത്തിലൂടെ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര നീതിന്യായ വകുപ്പ് മന്ത്രി രവിശങ്കർ പ്രസാദ് ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി ്സുപ്രീം കോടതിയിലെയും ഗുജറാത്ത് ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ നീതിന്യായ രംഗത്തെ വിദഗ്ധർ തുടങ്ങിയവർ സംബന്ധിക്കും

ബംഗളൂരുവുൽ നടക്കുന്ന എയ്റോ ഇന്ത്യയുടെ ഭാഗമായി നടക്കുന്ന സ്റ്റാർട്ടപ്പ് മൻതൻ സെമിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

സ്റ്റാർട്ടപ്പുകൾ നയിക്കുന്ന ഒരു സമ്പദ്വ്യവസ്ഥയിലേക്ക് നമ്മൾ മാറുന്ന കാലം വിദൂരമല്ല

ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നൂതന സാങ്കേതികവിദൃയുടെ സഹായം പ്രയോജനപ്പെടുത്തണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

റിപ്പോ നിരക്ക് നാലു ശതമാനത്തിൽ തുടരും

സമ്പദ്ഘടനയുടെ തിരിച്ചുവരവ് പരിഗ്ണിച്ചും വിലക്കയറ്റ നിരക്കിൽ നേരിയ കുറവുായതും ഗുണകരമാണെന്നാണ് വിലയിരുത്തൽ ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് നിരക്കുകളിൽ ഇത്തവണയും മാറ്റം വരുത്തേണ്ടെന്ന് വായ്പാവലോകന സമിതി തീരുമാനിച്ചത്

ബി ഐ

വിപണിയിൽ പണലഭൃത സാധാരണ രീതിയിലാകാനുള്ള നടപടികൾ തുടരുമെന്നും അദ്ദേഹം വൃക്തമാക്കി

ആസിയാൻ ഇന്ത്യ ഹാക്കത്തോണിന്റെ വെർച്ചൽ സമ്മാനദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യാതിർത്തി സംരക്ഷിക്കാനും പൊതു വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും ലോകം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും വിദേശകാരൃ മന്ത്രി വൃക്തമാക്കി കോവിഡ് പ്രതിസന്ധിയെ മറികടക്കുന്നതിന് ആഗോള തലത്തിൽ സഹകരണപരവും ബഹുമുഖവുമായ പരിഹാര മാർഗ്ഗങ്ങൾ കത്തെണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

വിശദാംശങ്ങളുമായി പ്രിയ സുബ്ബലക്ഷ്മി

അഞ്ചുലക്ഷം പേർക്ക് കോവിഡ് വാക്സിനേഷൻ നൽകിയ രാജ്യത്തെ ആദ്യസംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്

ബി എസ് ഇ

കഴിഞ്ഞ വർഷം മാർച്ചിലാണ് കോവിഡ് പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ സ്കൂളുകൾ അടച്ചിട്ടത്

എൻ രക്ഷാ സമിതി ആവശ്യപ്പെട്ടു

രജൌരി ജില്ലയിലെ ബി

എഫ് ക്യാമ്പിൽ നിന്നാണ് ഇവരെ കാണാതായതെന്ന് സുന്ദർബനി പോലിസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നു

ബംഗ്ലാദേശിന്റെ സ്വാതന്ത്യ സുവർണ ജൂബിലി വാർഷികവും ബംഗബന്ധു ഷേക് മുജീബ് റഹ്മാന്റെ ജന്മശതാബ്ദിയുമാണ് പുസ്തകോത്സവത്തിന്റെ പ്രധാന പ്രമേയം

പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ഇന്ത്യയിൽ നിന്നുള്ള സംഘത്തെ പ്രതിനിധികരിച്ചു

കോവിഡ് മഹാമാരിയെതുടർന്നുണ്ടായ നീണ്ട ഇടവേളയ്ക്കു ശേഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള ഇന്ത്യയുടെ തിരിച്ചുവരവാണ് ഈ മത്സരം നാല് മത്സരങ്ങളുള്ള പരമ്പരയിൽ വിജയിക്കുന്ന ടീം ഐസിസി ലോക ടെസ്റ്റ് ചാംപ്യൻഷിപ് ഫൈനലിൽ ഇടം നേടും

ചെന്നൈയിൻ് എഫ്

സ്വർണ്ണവില കുറഞ്ഞു

ഇന്ധനവിലയിൽ വർദ്ധന